അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ ഇന്നും നാളെയും രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് വ്യാഴാഴ്ച ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും എല്ലാവർക്കുമൊപ്പം എല്ലാവർക്കും വികസനം എല്ലാവരുടെയും വിശ്വാ സൃത എന്ന ലക്ഷ്യം മുൻനിർത്തി നിയമനിർമ്മാണത്തിന് ഗവൺമെന്റ് മുൻപന്തിയിലുണ്ടാവുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൊഴിലില്ലായ്മയും കർഷകരുടെ പ്രശ്നങ്ങളും ഉൾപ്പെടെ വിഷയങ്ങൾ പാർലമെന്റ് ചർച്ച ചെയ്യണമെന്ന് കോൺഗ്രസ് കേരളത്തിന് സ്വപ്നം കാണാനാകാത്ത പല പദ്ധതികളും പൂർത്തിയാക്കാൻ കഴിഞ്ഞതാണ് എൽ ഡി എഫിന്റെ നേട്ടമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജ യൻ ഐ എം എ ആഹ്വാനപ്രകാരം ഡോക്ടർമാരുടെ ദേശീയ പണിമുടക്ക് ആരംഭിച്ചു സംസ്ഥാനത്തെ ആശുപത്രികളുടെ പ്രവർത്തനത്തെയും സമരം ബാധിക്കും ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യക്ക് തകർപ്പൻ ജയം

പ്രോടേം സ്പീക്കർ വീരേന്ദ്രകുമാർ അംഗങ്ങൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കും മുതിർന്ന ബി ജെ പി നേതാവും മുൻ കേന്ദ്രമന്ത്രിയു മായ വീരേന്ദ്രകുമാർ സമ്മേളനം ആരംഭിക്കുന്നതിനുമുമ്പ് പ്രോടേം സ്വീക്ക റായി സത്യപ്രതിജ്ഞ ചെയ്യും രാഷ്ട്രപതിഭവനിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അദ്ദേഹത്തിന് സത്യവാചകം ചൊല്ലിക്കൊടുക്കും പുതിയ അംഗങ്ങളുടെ സത്യ പ്രതിജ്ഞയ്ക്ക് കൊടിക്കുന്നിൽ സുരേഷ് ഭാതൃഹരി മഹ്ത്താബ് ഉൾപ്പെടെ മുതിർന്ന അംഗങ്ങൾ പ്രോടേം സ്പീക്കറെ സഹായിക്കും ലോക്സഭ മറ്റന്നാൾ പുതിയ സ്പീക്കറെ തെരഞ്ഞെടുക്കും വ്യാഴാഴ്ച ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനത്തെ രാഷ്ട്രപതി അഭിസംബോധന ചെയ്യും നടപ്പുസാമ്പ ത്തിക വർഷത്തെ പൊതുബജറ്റ് അടുത്തമാസം അഞ്ചിന് ലോക്സഭയിൽ അവതരിപ്പിക്കും

മുത്തലാഖ് ബിൽ പൌരത്വ ഭേദഗതി ബിൽ ആധാർ ബിൽ ഇന്ത്യൻ മെഡിക്കൽ കൌൺസിൽ ബിൽ ഉൾപ്പെടെ സുപ്രധാന ബില്ലുകൾ പരിഗണനയ്ക്കുവരും ് പാർലമെന്റ് സമ്മേളനത്തിന് മുന്നോടിയായി ബി ജെ പി പാർല മെന്ററി പാർട്ടിയും എൻ ഡി എയും ഡൽഹിയിൽ യോഗം ചേർന്നു എല്ലാ വർക്കുമൊപ്പം എല്ലാവർക്കും വികസനം എല്ലാവരുട്ടെയും വിശ്വാസൃത എന്ന ലക്ഷ്യം മുൻനിർത്തി നിയമനിർമ്മാണം നടത്താൻ ഗവൺമെന്റ് മുൻപന്തിയി ലുണ്ടാവുമെന്ന് യോഗങ്ങളെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്ര മോദി അറിയിച്ചു വീണ്ടും അധികാർത്തിലേറ്റിയതിന് ജനങ്ങളോട് ബി ജെ പിക്ക് നന്ദിയുണ്ടെന്ന് യോഗത്തിനുശേഷം പ്രധാനമന്ത്രി ടിറ്ററിൽ കുറിച്ചു രാഷ്ട്രപുരോഗതിക്കായി അശ്രാന്ത പരിശ്രമം നടത്തുമെന്നും അദ്ദേഹം പറ ഞ്ഞു തൊഴിലില്ലായ്മ കർഷകരുടെ പ്രശ്നങ്ങൾ വരൾച്ച മാധ്യമസ്വാ തന്ത്യം ഉൾപ്പെടെ വിഷയങ്ങൾ പാർലമെന്റ് ചർച്ച ചെയ്യണമെന്ന് ഗവൺമെന്റ് ഇന്നലെ ഡൽഹിയിൽ വിളിച്ചുചേർത്ത യോഗത്തിൽ കോൺഗ്രസ് ആവശ്യ പ്പെട്ടു ജമ്മു കശ്മീരിൽ എത്രയും നേരത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നട ത്തണമെന്നും ആവശ്യപ്പെട്ടതായി യോഗത്തിനുശേഷം രാജ്യസഭ പ്രതിപക്ഷ നേതാവ് ഗുലാം നബി ആസാദ് വാർത്താലേഖകരെ അറിയിച്ചു

പാലക്കാട് കുലുക്കലൂരിൽ സി പി ഐ എം ലോക്കൽ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി

രാജ്യത്തെ മുഴുവൻ വലതുപക്ഷ ശക്തികളുടെ എതിർപ്പ് മറികടന്ന് ഇടതുപക്ഷം മുന്നേറുമെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ആഹ്വാന പ്രകാരം ഡോക്ടർമാരുടെ ദേശീയ പണിമുടക്ക് ആരംഭിച്ചു

ഡോക്ടർമാർക്കും ആശുപത്രി കൾക്കും ജീവനക്കാർക്കുമെതിരായ അക്രമം നേരിടാൻ കേന്ദ്രം സമഗ്രനിയമം കൊണ്ടുവരണമെന്നാവശൃപ്പെട്ടാണ് ഐ എം എ പണിമുടക്ക് ആഹ്വാനം നൽകിയത് സംസ്ഥാനത്ത് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷൻ പണിമുടക്കിന് പിന്തുണ പ്രഖ്യാപിച്ചു

അത്യാഹിത വിഭാഗം ഐ സി യു ശസ്ത്രക്രിയ ലേബർ റൂം പ്രവർത്ത നങ്ങളെ സമരം ബാധിക്കില്ലെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ കോഴി ക്കോട്ട് അറിയിച്ചു കെ ജി എസ് ഡി എയുടെ നേതൃത്വത്തിൽ സ്പെഷ്യാ ലിറ്റി ഡോക്ടർമാർ ഒ പിയിൽ നിന്ന് വിട്ടുനിൽക്കും സ്ഥകാര്യ പ്രാക്ടീസ് പൂർണ്ണ മായും ഒഴിവാക്കും ഡന്റൽ ക്ലിനിക്കുകളും ഇന്ന് അടച്ചിടും സ്വകാര്യ ആശു പത്രികളും പ്രവർത്തിക്കില്ല അതിനിടെ പശ്ചിമബംഗാളിൽ സമരം നടത്തുന്ന ഡോക്ടർമാർ നില പാട് മയപ്പെടുത്തി മുഖ്യമന്ത്രി മമതാ ബാനർജിയുമായി അവർ ഇന്ന് ചർച്ച നടത്തും ഇതിന്റെ വേദി മുഖ്യമന്ത്രിക്ക് തീരുമാനിക്കാമെന്നും മാധ്യമങ്ങളുടെ സാന്നിധൃത്തിൽവേണം ചർച്ചയെന്നും അവർ അറിയിച്ചു

കുട്ടികളെ സഹായിക്കാൻ കേന്ദ്രം സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് ആരോഗ്യമന്ത്രി ഹർഷ് വർദ്ധൻ അറിയിച്ചു മസ്തിഷ്ക ജ്രം ബാധിച്ച കുട്ടി കൾ ചികിത്സയിൽ കഴിയുന്ന ശ്രീകൃഷ്ണ മെഡിക്കൽ കോളേജും ആശുപ ത്രിയും സന്ദർശിച്ചശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേ ഹം

മാണിയെ കേരള കോൺഗ്രസ് എം ചെയർമാനായി തെരഞ്ഞെടുത്തത് പാർട്ടി ഭരണഘടനയ്ക്ക് വിരുദ്ധമായാണെന്ന് വർക്കിംഗ് ചെയർമാൻ പി

ജോസഫ് കുറ്റപ്പെടുത്തി ജനക്കൂട്ടത്തിന് പാർട്ടി സംസ്ഥാന ചെയർമാനെ തെരഞ്ഞെടുക്കാനാവില്ലെന്ന് അദ്ദേഹം കോട്ടയത്ത് പറഞ്ഞു അനധികൃതയോഗമാണ് ജോസ്

മാണിയുടെ നേതൃത്വത്തിൽ ചേർന്ന തെന്നും യോഗത്തിൽ പങ്കെടുത്തവർ പാർട്ടിക്ക് പുറത്തായി കഴിഞ്ഞെന്നും ജോസഫ് അറിയിച്ചു യോഗത്തിൽ പങ്കെടുത്ത ഭൂരിപക്ഷം പേരും സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെല്ലന്നും അദ്ദേഹം പറഞ്ഞു

് ് ് ് ് ് ഗവൺമെന്റ് സ്വകാര്യ സ്വാശ്രയ കോളേജുകളിലെ എഞ്ചിനിയ റിംഗ് ആർകിടെക്ചർ ഫാർമസി പ്രവേശനത്തിന് ട്രയൽ അലോട്ട്മെന്റ് ഇന്ന് പ്രസിദ്ധീകരിക്കും വൈകിട്ട് ആറിനാണ് അലോട്ട്മെന്റ് പ്രസിദ്ധീകരിക്കുക

ലോകകപ്പ് ക്രിക്കറ്റിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യക്ക് തകർപ്പൻ ജയം

ഇതോടെ ഈ ലോകകപ്പിൽ തുടർച്ചയായ മൂന്നാം ജയത്തോടെ ഇന്ത്യ പോയന്റ് പട്ടിക യിൽ മൂന്നാം സ്ഥാനത്തെത്തി

രാഹുലുമാണ് ഇന്ത്യക്ക് കരുത്ത് പകർന്നത്

് ് തേഞ്ഞിപ്പലത്ത് സമാപിച്ച സംസ്ഥാന സീനിയർ അത്ലറ്റിക് മീറ്റിൽ കോട്ടയം ജില്ല ഓവറോൾ കിരീടം നേടി

പാലക്കാടിനാണ് മൂന്നാം സ്ഥാനം വനിതാ വിഭാഗത്തിൽ കോട്ടയവും പുരു ഷവിഭാഗത്തിൽ പാലക്കാടും ജേതാക്കളായി

കടൽ പൊതുവെ പ്രക്ഷുബ്ധമായിരിക്കുമെന്നും കാലാവസ്ഥാകേന്ദ്രം മത്സ്യത്തൊഴിലാളികൾക്ക് മുന്നറിയിപ്പ് നൽകി പൊഴി യൂർ മുതൽ കാസർകോടുവരെ മൂന്നു മീറ്റർ ഉയരത്തിൽ തിരമാലകൾക്കും സാധ്യതയുണ്ട്

പ്രകൃതിയുടെയും വരുംതലമുറയുടെയും ഭാവിയെ കരുതി സ്വയം മാറാൻ മനുഷ്യർ തയ്യാറാകണമെന്ന് മന്ത്രി എം എം മണി പറഞ്ഞു ഹരിതകേരളം മിഷന്റെ പച്ചത്തുരുത്ത് പദ്ധതിയുടെ ഇടുക്കി ജില്ലാതല ഉദ്ഘാടനം കാഞ്ഞാറിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം വെള്ളിയാമറ്റം ഗ്രാമപ്പഞ്ചായത്തിന്റെ പച്ചത്തുരുത്തിൽ ആദ്യ തൈ നട്ടുകൊണ്ടാണ് മന്ത്രി ഉദ്ഘാടനം നിർവഹിച്ചത്

കേട്ടുകൊണ്ടിരിക്കുന്ന പ്രാട്ടുകൾക്ക് ദൃശൃവൽക്കരണം ആവശ്യമാണെന്നും മാപ്പിളപ്പാട്ടുകളുടെ ദൃശ്യാവിഷ്കാരത്തിന് വൈദ്യർ അക്കാദമി നേതൃത്വം നൽകണമെന്നും മന്ത്രി ഡോ

കൊണ്ടോട്ടിയിൽ മഹാകവി മോയിൻകുട്ടി വൈദ്യർ മാപ്പിള കലാഅക്കാദമിയിലെ മുപ്പതിനായിരത്തോളം വരുന്ന മാപ്പിളപ്പാട്ട് ശേഖരമായ മ്യൂസിക്കൽ ആർകൈവ്സിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായി രുന്നു അദ്ദേഹം പഴയകാല ഗ്രാമഫോണുകളിലും കാസറ്റുകളിലും ഉണ്ടായിരുന്ന ഗാനങ്ങളാണ് വിവിധ സ്ഥലങ്ങളിൽ നിന്നായി വൈദ്യർ അക്കാദമി ശേഖരിച്ചത്

ക്രിപാദേശിക വികസന ഫണ്ട് അനുവദിക്കുന്ന കാര്യ ത്തിൽ അടിയന്തരാവശ്യങ്ങൾക്ക് മുൻഗണന നൽകു മെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു കോഴിക്കോട് തലക്കുളത്തൂർ ഗ്രാമപഞ്ചായത്തിലെ പാവയിൽ തീരദേശ വികസന റോഡ് ഉദ്ഘാടനം ചെയ്യുകയാ യിരുന്നു മന്ത്രി

എന്നാൽ അടിയന്തര പ്രാധാന്യമുള്ള വിഷയങ്ങൾക്ക് ആവശ്യമായ മുൻഗണന നൽകുകയെന്നതാണ് ഗവൺമെന്റ് നയമെന്നും അദ്ദേഹം വ്യക്തമാക്കി

സ്ത്രീ സുരക്ഷ ഉറപ്പാക്കാൻ കഴിയാത്ത സാഹചര്യ ത്തിൽ ആഭ്യന്തര വകുപ്പ് കൈകാരൃം ചെയ്യുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്ന് മഹിളാമോർച്ച സംസ്ഥാന പ്രസിഡന്റ് പ്രൊഫ

രമ ആവശ്യപ്പെട്ടു മഹിളാ മോർച്ച സംസ്ഥാന സമിതിയോഗം ഭക്വാഴിക്കോട്ട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ കേരളത്തിൽ സ്ത്രീസുരക്ഷ തകർന്നിരിക്കുകയാണെന്നും അവർ കുറ്റപ്പെടുത്തി

ചിന്തകളെ കാലാനുസൃതമായി വളർത്തേണ്ടത് നമ്മുടെ കടമയാണെന്നും വിവേകാനന്ദ നെപ്പോലുള്ള ഋഷിതുല്യരാണ് നമ്മുടെ സംസ്കാരത്തിന്റെ യഥാർത്ഥ പ്രതിനിധികളെന്നും ഭാരതീയ വിചാരകേന്ദ്രം ജോ ഡയറക്ടർ ആർ സഞ്ജയൻ പറഞ്ഞു ഭാരതീയ വിചാരകേന്ദ്രം സംസ്ഥാന പഠന ശിബിരത്തിന്റെ സ്വാഗതസംഘ രൂപീകരണയോഗം മലപ്പുറത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കോഴിക്കോട് കോർപറേഷൻ മുൻ മേയർ കോളിയോട്ട് ഭരതൻ നിര്യാതനായി കാരപ്പറമ്പിലെ വസതിയിൽ ഇന്നലെ രാത്രിയായിരുന്നു അദ്ദേ ഹത്തിന്റെ അന്ത്യം

രണ്ടുതവണ കോർപറേഷൻ മേയ റായിട്ടുണ്ട് ജില്ലാ സഹകരണ ആശുപത്രി പ്രസിഡന്റായും പ്രവർത്തിച്ചു

കണ്ണൂർ ചെറുകുന്നിൽ ബൈക്കും ലോറിയും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരായ രണ്ടുപേർ മരിച്ചു പള്ളിക്കർയിലെ മുഹസിൻ ജാസിം എന്നി വരാണ് മരിച്ചത്

അഞ്ചു സി പി ഐ എം പ്രവർത്തകർക്കും രണ്ടു ബി ജെ പി പ്രവർത്തകർക്കുമാണ് പരിക്കേറ്റതെന്ന് പൊലീസ് അറിയിച്ചു

വ്യാജ ചികിത്സയ്ക്ക് പിഴ വർദ്ധിപ്പിച്ച് ആരോഗ്യ മേഖലയിൽ നിയമ നിർമ്മാണം നടത്തണമെന്ന് ആയുർവേദ മെഡിക്കൽ അസ്സോസിയേഷൻ എറണാകുളം സോൺ മിഡ്കോൺഫറൻസ് ആവശ്യപ്പെട്ടു ആർദ്രം പദ്ധതിയിൽ ആയുർവേദത്തിന് അർഹമായ പ്രാധാന്യം നല്കുക ഗവൺമെന്റ് മേഖലയിൽ കിടത്തി ചികിത്സാ സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും സമ്മേളനം ഉന്നയിച്ചു

ദുബായിൽ നിന്നും മസ്ക്കറ്റ് വഴി ഒമാൻ എയർലൈൻസ് വിമാനത്തിൽ കോഴിക്കോട് വിമാന ത്താവളത്തിൽ ഇറങ്ങിയ യാത്രക്കാരനിൽ നിന്ന് കണക്കിൽപ്പെടാത്ത രണ്ട് സ്വർണ്ണ ചെയിനും ഒരു സ്വർണ ബിസ്കറ്റും പിടികൂടി